ഒൻപത് ജില്ലകളിൽ റെഡ് അലർട്ട് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വടക്കൻ മലബാറിൽ വൻ ന്റൂശനഷ്ടം

ടൌട്ടെ ഗുജറാത്തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് നാളെവരെ അതിശക്തമായ മഴ

ട്രിപ്പിൾ ലോക്ഡൌൺ ജില്ലാതിർത്തികൾ അടയ്ക്കും സംസ്ഥാനം മഴ ടൌട്ടെ ചുഴലിക്കാറ്റിനെത്തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായി അതി ശക്തമായ മഴ

തൃശൂർ ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് ലക്ഷദ്വീപിലും റെഡ് അലർട്ടുണ്ട് മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിശക്തമായ കാറ്റിനും സാധൃതയുള്ളതായി ദുർന്തനിവാരണ അതോറിറ്റി അറിയിച്ചു

ടൌട്ടെ ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് ഇന്നലെയും ഇന്നും തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിലും കനത്ത നാശനഷ്ടം

കൊല്ലം തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ ജില്ലകളിലും വൈദ്യുതി സംവിധാനത്തിന് വലിയതോതിൽ നാശനഷ്ടം ഉണ്ടായി എന്നാൽ ജീവനക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് കെ എസ് ഇ ബി

ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്

വി ക്കെനിലെ തകരാറുകൾ പരിഹരിക്കുന്നതിനാവും മുൻഗണന നൽകുക അപകടങ്ങളോ അപകട സാധൃതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ കെ എസ് ഇ ബി

തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് മേഖലയിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി തുടങ്ങി

കൂടുതൽ വിവിരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

പലയിടത്തുംവീടുകൾക്ക് ഉൾപ്പടെ

കൂടുതൽ വിവരങ്ങളുമായി ആകാശ്ലവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

പത്തനംതിട്ട കളക്ടർ പത്തനംതിട്ട ജില്ലയിൽ മഴ നിലയ്ക്കാത്ത സാഹചര്യത്തിൽ എല്ലാ വകുപ്പ്തല ഉദ്യോഗസ്ഥരും ജാഗരൂകരായിരിക്കണമെന്ന് ജില്ലാ കളക്ടർ നരസിംഹുഗാരി തേജ് ലോഹിത് റെഡ്സി നിർദേശിച്ചു നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതേസമയം ജില്ലയിലെ ഡാമുകളിൽ മൂഴിയാർ ്ഡാമൊഴിച്ച് മറ്റുള്ളവ നിലവിൽ തുറക്കേണ്ട സാഹചര്യമില്ല

രോഗവ്യാപനം കൂടിയ തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ട്രിപ്പിൾ ലോക്ഡൌൺ

്മരുന്ന്കട പെട്ടോൾപ്പ്മ്പ് എന്നിവ തുറക്കും

വീട്ടുജോലിക്കാർ ് ഔൺലൈൻ പാസ് കൈയ്യിൽ കരുതണം ഇവിടങ്ങളിൽ ബ്രേക്കറി പലവൃജ്ഞനക്കടകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാിത്രുമേ തുറക്കാവൂ

ഉയർന്ന ടെസ്റ്റ് പോസിറ്റീവിറ്റി ഉള്ള മേഖലകളിൽ കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു